മുസ്ലീം ലീഗ് നേതാവും മഞ്ചേശ്വരം എംഎൽഎയുമായ പി

അബ്ദുൾ റസാഖ് അന്തരിച്ചു പുലർച്ചെ സ്വകാര്യ ആശുപത്രി യിലായിരുന്നു അന്ത്യം

ശബരിമലയിലേയും പരിസരത്തേയും നിരോധനാജ്ഞ തിങ്ക ളാഴ്ച്ച വരെ നീട്ടി

ഐഎസ്എൽ ഫുട്ബോളിൽ കൊച്ചിയിൽ ഇന്ന് കേരളാ ബ്ലാസ്റ്റേ ഴ്സ് ഡെൽഹി ഡൈനാമോസിനെ നേരിടും

എഴുപതിലധികം പേർക്ക് പരിക്കേറ്റു ആഘോഷങ്ങളുടെ ഭാഗമായി രാവണന്റെ കോലം കത്തി ക്കുന്നത് കാണാൻ ട്രാക്കിൽ കയറി നിന്നവരാണ് ജലന്ധർ അമൃ ത്സർ ഡെമു ട്രെയിൻ തട്ടി മരിച്ചത്

വൻതോതിൽ പട ക്കങ്ങൾ പൊട്ടിച്ചതുകൊണ്ടും തൊട്ടു മുമ്പ് മറ്റൊരു ട്രെയിൻ കടന്നു പോയതു കൊണ്ടും ആൾക്കൂട്ടത്തിന് ട്രെയിനിന്റെ വരവ് കാണാൻ കഴിയാതിരുന്നതാണ് അപകടത്തിന് കാരണമെന്ന് കരുതുന്നു

മരണസംഖ്യ ഇനിയും കൂടിയേക്കുമെന്നാണ് സൂചന രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിങ്ങ് എന്നിവരടക്കം പ്രമുഖർ അപകടത്തിൽ അനുശോചനം അറി യിച്ചു റെയിൽവെയും പഞ്ചാബ് ഗവൺമെൻും അപകടത്തെ കുറിച്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടു വിദേശ സന്ദർശനം നടത്തുകയായി രുന്ന റെയിൽവെ മന്ത്രി പീയുഷ് ഗോയൽ യാത്ര വെട്ടിച്ചുരുക്കി രാജ്യത്തേക്ക് മടങ്ങിയിട്ടുണ്ട് മരിച്ചവരുടെ ആശ്രിതർക്ക് പഞ്ചാബ് ഗവൺമെന്റ് അഞ്ച് ലക്ഷം രൂപ വീതം ആശ്ചാസ ധനം പ്രഖ്യാപി ച്ചു പരിക്കേറ്റവർക്ക് സൌജന്യ ചികിത്സയും നൽകും മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർ സിങ്ങ് രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ രാവിലെ അമൃത്സറിലെ ത്തും മുസ്ത്രീം ലീഗ് നേതാവും മഞ്ചേശ്വരം എംഎൽഎയുമായ പി

അബ്ദുൾ റസാഖ് കാസർക്കോട്ട് അന്തരിച്ചു

അസുഖബാധിതനായ അബ്ദുൾ റസാഖിനെ ഏതാനും ദിവസം മുമ്പാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മുസ്ലീം ലീഗ് ദേശീയ എക്സിക്യൂട്ടീവ് അംഗമാണ് കാസർകോട് ജില്ലാ പഞ്ചാ യത്ത് പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്

കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബിജെപി നേതാവ് കെ

കരുണാകരൻ എം

പി തുടങ്ങിയവരടക്കം നേതാക്കൾ അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ അനുശോചിച്ചു സൂപ്രീം കോടതി യുവതീ പ്രവേശന വിധിയുടെ അടിസ്ഥാന ത്തിൽ ശബരിമല ക്ഷേത്രപ്രവേശനത്തിന് കർശനമായ സുരക്ഷ ഒരു ക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റാണ് സംസ്ഥാനത്തോട് ആവശൃപ്പെട്ട തെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വൃക്തമാക്കി ക്രമസമാധാനം ഉറപ്പാക്കാനും സംഘർഷം ഒഴിവാക്കാനും യുക്തമായ നിരോധന ഉത്ത രവുകൾ പുറപ്പെടുവിക്കാനും സംസ്ഥാനത്തിന് അയച്ച കത്തിൽ നിർദേശം നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം ഫെയ്സ്ബുക്ക് പോസ്റ്റിൽ അറിയിച്ചു എല്ലാ വിശ്വാസികൾക്കും ദർശനം നടത്താൻ ഗവൺമെന്റ് സാഹ ചര്യമൊരുക്കും

വിശ്വാസം സംരക്ഷിച്ചു കൊണ്ടുതന്നെ കോടതി വിധി നടപ്പാക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സുപ്രീം കോടതി വിധി അനുസരിച്ച് ദർശനത്തിനെത്തുന്നവരെ ചിലർ തടയുകയും നിയമം കയ്യിലെടുക്കുകയും ചെയ്യുകയാണ് ഇത്തരം ഘട്ടങ്ങളിൽ അത് മറികടന്ന് സ്ത്രീകളുടെ ക്ഷേത്ര ദർശനം സാധ്യ മാക്കാനാണ് പൊലീസ് ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു ൃ സംഘർഷ സാധൃത മുൻനിർത്തി ഇലവുങ്കൽ മുതൽ ശബരിമല സന്നിധാനം വരെ എല്ലാ പ്രദേശങ്ങളിലും നിരോധനാജ്ഞ നടയട ക്കുന്ന തിങ്കളാഴ്ച്ച വരെ നീട്ടി ഈ സ്ഥലങ്ങളിൽ പ്രാർത്ഥനാ യജ്ഞം മാർച്ച് പ്രതിഷേധ പരിപാടികൾ ഒത്തുകൂടലുകൾ എന്നിവ നിരോ ധിച്ചു തീർത്ഥാടകർക്ക് സമാധാനപരമായ ദർശനവും അവരുടെ വാഹ നങ്ങൾക്ക് സുഗമമായ സഞ്ചാരവും ഉറപ്പാക്കാനാണ് നടപടി

ആന്ധ്രാ പ്രദേശ് സ്വദേശിയായ മാധ്യമ പ്രവർത്തക കവിത ജെക്കാലയേയും കൊച്ചി സ്വദേശിയായ രഹ്ന ഫാത്തിമയെയും തടഞ്ഞ കണ്ടാലറി യാവുന്നവർക്കെതിരെയാണ് കേസ് നിരോധനാജ്ഞ ലംഘിച്ച് സംഘം ചേരൽ സുപ്രീം കോടതി ഉത്തരവ് ലംഘിച്ച് മാർഗ തടസ്സം

ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ പ്രകടമാകുന്നത് കേര ളത്തിലെ സവർണ സാമ്പത്തിക മേധാവിത്ത പുനസ്ഥാപന ശ്രമമാ ണെന്ന് മന്ത്രി ജി സുധാകരൻ കുറ്റപ്പെടുത്തി വിശ്വാസത്തിന്റെ പേരിൽ ലിംഗ വിവേചനം പാടില്ലെന്നും അദ്ദേഹം ചേർത്തലയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു

അതേസമയം കോട്ടതിയുത്തരവിന്റെ പേരിൽ ശബരിമലയിൽ കോലാഹലമുണ്ടാക്കുന്നവർ പഴയ ഫ്യൂഡൽ വൃവസ്ഥ തിരിച്ചുകൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരാണെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് നിരീശ്വരവാദം നടപ്പാക്കാൻ ഇടത് ഗവൺമെന്റ് ശ്രമിക്കുകയാണെന്ന് എൻഎസ്എസ് കുറ്റപ്പെടുത്തി നിരവധി സുപ്രീം കോടതി വിധികൾ നടപ്പാക്കാത്ത ഗവൺമെന്റ് ശബരിമല വിധി മാത്രം നടപ്പാക്കാൻ അനാവശ്യമായ ധൃതി കാണിച്ചുവെന്ന് എൻഎസ്എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ചങ്ങനാശേരിയിൽ കുറ്റപ്പെടുത്തി വിശ്വാസ സംരക്ഷണത്തിന് സംഘടന ഏതറ്റും വരെയും പോകുമെന്നും അദ്ദേഹം വൃക്തമാക്കി

ശബരിമലയിൽ പുനപരിശോധന ഹർജിയിൽ സൂപ്രീം കോടതി തീരുമാനം വരുന്നതുവരെ നിയന്ത്രണം തുടരാൻ ഗവൺമെന്റ് തീരു മാനിക്കണമെന്ന് മുൻമുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു ഹർജിയിൽ ഫലം കണ്ടില്ലെങ്കിൽ സർവ്വകക്ഷി യോഗം വിളിച്ചും ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്തും നിയമനടപടി സ്വീക രിക്കാൻ ഗവൺമെന്റ് സന്നദ്ധമാകണം

സംസ്ഥാന ഗവൺമെന്റും ബിജെപിയും മുൻകൂട്ടി തയാറാക്കിയ തിരക്കഥയനുസരിച്ചാണ് ഓരോ ദിവസവും ശബരിമലയിൽ സംഭവ ങ്ങൾ അരങ്ങേറുന്നതെന്ന് പത്തനംതിട്ട ഡിസിസി പ്രസിഡന്റ് ബാബു ജോർജ്ജ് പത്തനംതിട്ടയിൽ ആരോപിച്ചു

കൊച്ചുവേളിയിൽ നിന്ന് ബെങ്കലൂരുവിലെ ബാനസവാടിയിലേക്ക് പോകുന്ന ഹംസഫർ എക്സ്പ്രസർ ഇന്ന് കേന്ദ്ര സഹമന്ത്രി അൽഫോൻസ് കണ്ണന്താനം ഫ്ളാഗ് ഓഫ് ചെയ്യും

മന്ത്രിമാരായ കടകംപള്ളി സുരേന്ദ്രനും ജി സുധാകരനും ജനപ്രതിനിധികളും ഫ്ളാഗ് ഓഫ് ചട ങ്ങിൽ പങ്കെടുക്കും

വെള്ളി ഞായർ ദിവസങ്ങളിൽ രാത്രി ഏഴിനാണ് മടക്കയാത്ര

ട്രെയിനിന്റെ പതിവ് സർവീസുകൾ ബാനസവാടിയിൽ നിന്ന് ഇന്നും കൊച്ചുവേളിയിൽ നിന്ന് അടുത്ത വ്യാഴാഴ്ച്ചയും തുടങ്ങും കുറുപ്പന്തറ ഏറ്റുമാനൂർ പാത ഇരട്ടിപ്പിക്കൽ ജോലികൾ നട ക്കുന്നതിനാൽ ഇന്നത്തെ മൂന്ന് പാസഞ്ചർ ട്രെയിനുകൾ റദ്ദാക്കി കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദിയടക്കം മൂന്ന് ട്രെയിനുകൾ ആലപ്പുഴ വഴി തിരിച്ചുവിടുമെന്നും റെയിൽവെ അറിയിച്ചു എറണാകുളം കായംകുളം എറണാകുളം പാസഞ്ചറുകൾ എറണാകുളം കൊല്ലം എറണാകുളം മെമെ സർവ്വീസുകൾ എന്നി വയാണ് റദ്ദാക്കിയത് തിരുവനന്തപുരം ഹൈദരാബാദ് ശബരി എക്സ്പ്രസ് ന്യൂഡൽഹി തിരുവനന്തപുരം കേരള എക്സ്പ്രസ് എന്നിവ ആല പ്പുഴ വഴി തിരിച്ചു വിടും കന്യാകുമാരി മുംബൈ ജയന്തി ജനതാ എക്സ്പ്രസ് കോട്ടയം സ്റ്റേഷനിൽ ഒരു മണിക്കൂറിലേറെ പിടിച്ചിടുമെന്നും റെയിൽവെ അറി യിച്ചു

വൈകീട്ട് ഏഴരക്കാണ് കിക്കോ ഫ് രണ്ടു മത്സരങ്ങളിൽ ഒരു വിജയവും ഒരു സമനിലയും നേടിയ ബ്ലാസ്റ്റേഴ്സിന് നാലു പോയിന്റുണ്ട് ഡൽഹി ഇതുവരെ ടൂർണ മെന്റിൽ വിജയം നേടിയിട്ടില്ല അർജന്റീനയിൽ ബ്യൂണസ് ഐറിസിൽ യൂത്ത് ഒളിമ്പിക്സിന് ഇന്നലെ കൊടിയിറങ്ങി

മസ്ക്കറ്റിൽ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് പാക്കി സ്ഥാനെ നേരിടും

ഡെൻമാർക്ക് ഓപ്പൺ ബാഡ്മിൻണിൽ ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്ത് സൈന നെഹ്വാൾ സമീർ വർമ്മ എന്നിവർ ക്വാർട്ടറിലെ ത്തി പുരുഷ സിംഗിൾസിൽ ലോകചാമ്പ്യൻ ലിൻഡാനെ മറികട ന്നാണ് ശ്രീകാന്ത് അവസാന എട്ടിലെത്തിയത് ക്വാർട്ടറിൽ സമീർ വർമ്മയാണ് ശ്രീകാന്തിന്റെ എതിരാളി വനിതകളിൽ ലോക രണ്ടാം നമ്പർ ജപ്പാന്റെ അകാനെ യമഗു ച്ചിയെ തോൽപ്പിച്ചാണ് സൈന ക്വാർട്ടറിലെത്തിയത് ജപ്പാന്റെ നോസോമി ഒകുഹാരെയെ സൈന കാർട്ടറിൽ നേരിടും സംസ്ഥാന ജൂനിയർ ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ കോഴിക്കോടും മലപ്പുറവും സെമിയിലെത്തി

കോട്ടയം പത്തനംതിട്ട ജില്ലകളിലൂടെ ഒഴുകുന്ന മണിമലയാറിനെ വീണ്ടെടുക്കുന്നതിന് എന്റെ മണിമലയാർ പദ്ധതിക്ക് ഇന്ന് രാവിലെ തുടക്കമാകും മണിമല ബ്രിട്ടീഷ് പാലത്തിനടിയിലേയും മണിമല യാറ്റിൽ ചേരുന്ന കൊണ്ടൂർ തോട്ടിലേയും മാലിനൃം നീക്കം ചെയ്ത് എൻ ജയരാജ് എംഎൽഎയുടെ നേതൃത്വത്തിൽ രാവിലെ ശുചീക രണ പരിപാടി തുടങ്ങും

ജല വിനോദ സഞ്ചാര കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന പദ്ധതി മത്സൃഫെഡ് ചെയർമാൻ പി

ചിത്തരഞ്ജൻ ഉദ്ഘാടനം ചെയ്യും

പുന്നപ്രയിലും മാരാ രിക്കുളത്തും വയലാറിലും പതാക ഉയർത്തൽ ചടങ്ങ് നടക്കും

മീ ടു ആരോപണങ്ങളെ തുടർന്ന് കൊച്ചി ബിനാലെ ഫൌണ്ടേ ഷൻ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് റിയാസ് കോമുവിനെ ഒഴിവാക്കി

വൈറ്റ് കെയ്ൻ ഉപയോഗത്തെ കുറിച്ചും വികലാംഗ സംരക്ഷണ നിയമത്തെ കുറിച്ചും നാളെ കൊയിലാണ്ടിയിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തും